ഗോതബയ രജപക്സെയും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു

ഒരുക്കങ്ങൾ പൂർത്തിയായി

കാർഡ് കൈമാറണമെന്ന പ്രതി ദിലീപിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി

ടൂർണമെന്റിൽ കിടംബി ശ്രീകാന്തും സൌരഭ് വർമ്മയും ക്വാർട്ടർ ഫൈനലിലേയ്ക്ക്

ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതും സഹകരണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതു സംബന്ധിച്ച ചർച്ചകൾ ഇരുനേതാക്കളും നടത്തും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായും ശ്രീലങ്കൻ പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും രാഷ്ട്രപതി ഭവനിൽ ശ്രീലങ്കൻ പ്രസിഡന്റിന് ഇന്ന് ഔദ്യോഗിക വരവേൽപ്പ് നൽകും മൂന്നു ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്നലെ വൈകിട്ടാണ് പ്രസിഡന്റ് രജപക്സെ ന്യൂഡൽഹിയിലെത്തിയത് ശ്രീലങ്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള പ്രസിഡന്റ് രജപക്സെയുടെ ആദ്യ വിദേശ സന്ദർശനമാണ് ഇത്

കൂടുതൽ വിവരങ്ങളുമായി സ്ുവർണ

എല്ലാ മണ്ഡലങ്ങളിലും നക്സൽ ആക്രമണ സാധ്യതയുളളതിനാൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുളളത് സമ്മതിദായകർക്ക് ഇതാദൃമായി ടോക്കൺ രീതി ഏർപ്പെടുത്തുകയാണെന്ന് ത്ധാർഖണ്ഡ് തെരെഞ്ഞെടുപ്പ് ഓഫീസർ വിനയ്കുമാർ ചൌബി ആകാശവാണിയോട് പറഞ്ഞു

അതേസമയം ഝാർഖണ്ഡിൽ നാലാം ഘട്ട നിയമസഭ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുളള സമയപരിധി ഇന്ന് അവസാനിക്കും

ന്യൂസ്ഡെസ്ക് ആകാശവാണി

വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എസ് പി മുതൽ ഡി ജി റാങ്ക് വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പോലീസ് ഗവേഷണ വികസന ബ്യൂറോയും യു

ബി ഐ സി ആർ

എഫ് ബി എസ്

പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ ശ്രീമതി പ്രകിരുൺ ബേദിയാണ് സയൻസ് കോൺഗ്രസ്സിന്റെ ഉദ്ഘാടനം ഇന്ന്ലെ നിർവഹിച്ചത്

മാരും നാഷണൽ കോൺഫറൻസ് എം

മാരും ഇന്ന് പാർലമെന്റ് സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയ്ക്കു മുന്നിൽ പ്രതിഷേധിച്ചു ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയുടെ മോചനം ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം കാശ്മീരിലെ സ്ഥിതിഗതികൾ സാധാരണ നിലയിൽ അല്ലെന്ന് ഡി

പൌരത്വ ഭേദഗതി ബിൽ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള കോൺഗ്രസ് എം

തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർറാവു മന്ത്രിസഭായോഗത്തിനു ശേഷം ഹൈദരാബാദിൽ നടന്ന വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്

ഇന്ന് രാവിലെ മുതൽ തന്നെ ജീവനക്കാർ ജോലിയിൽ പ്രവേശിച്ചു തുടങ്ങിയതായാണ് റിപ്പോർട്ട്

എന്നാൽ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ദിലീപിന് കോടതി അനുമതി നൽകി ജസ്റ്റിസ് എ

ഇരയുടെ സ്വകാര്യത പരിഗണിച്ചാണ് ദൃശ്യങ്ങളുടെ പകർപ്പ് നൽകാത്തതെന്നും പരമോന്നത കോടതി പറഞ്ഞു ഇക്കാരൃത്തിൽ സുപ്രീംകോടതി ചില മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു കൊല്പം വാഹന അപകടം ക്രിമിനൽ കേസ് കൊല്ലം കടയ്ക്കലിൽ വാഹന പരിശോധനയ്ക്കിടെ ലാത്തിയെറിഞ്ഞ് ബൈക്ക് യാത്രികന് അപകടമുാക്കിയ സിവിൽ പോലീസ് ഓഫീസർക്കെതിരെ ക്രിമിനൽ കേസെടുത്തു അതേസമയം യുവാവിനെ വീഴ്ത്തിയ പോലീസുകാരനെ സർവ്വീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സാരമായി പരിക്കേറ്റ യുവാവ് തിരുവനന്തപുരം മെഡിക്കൽകോളേജിൽ ചികിൽസയിലാണ്

കൂടുതൽ വിവരങ്ങളുമായി സുവർണ വോയ്സ് സത്യപ്രതിജ്ഞാ ചടങ്ങിനു് ശേഷം മുംബൈയിലെ സഹ്യാദ്രി ഗസ്റ്റ് ഹൌസിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പുതിയതായി ചുമതലയേറ്റ ആറ് മന്ത്രിമാരും പങ്കെടുത്തു കർഷകർക്കായുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുമെന്ന് യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി ഉദ്ദവ് താക്കറേ മാധ്യമങ്ങളോട് പറഞ്ഞു

മഴ മൂലം ദുരിതം അനുഭവിക്കുന്ന കർഷകർക്കായി താൽക്കാലിക സമാശ്വാസങ്ങൾ അല്ല ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം വൃക്തമാക്കി കർഷകർക്കായി വരുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ശ്രീ

ഇന്നലെ വൈകുന്നേരം ശിവാജി പാർക്കിൽ നടന്ന ചടങ്ങിലാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ഉദ്ദവ് താക്കറെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്

വിനോദസഞ്ചാരകേന്ദ്രങ്ങളെയുംസന്ദർശകർ ധാരാളമെത്തുന്ന മറ്റുസ്ഥലങ്ങളെയുംലൈറ്റ് മെട്രോസ്റ്റേഷനുകളുമായി ബന്ധിപ്പിക്കണമെന്ന്ലഫ് ഗവർണർ നിർദേശിച്ചു

ഇറ്റലിയിലെ യക്കാർത്ഥ് ജീവിതം വരച്ചു കാട്ടുന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത്ക് പ്രശസ്ത ഇറാനി സംവിധായകൻ മൊഹ്സൻമഖ്മൽ ബഫ് ആണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ക്സൌഡിയയുടെയും മകൾ മാർഗിയുടെയും ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ചലച്ചിത്രം വിഷയമാക്കുന്നത് ഇന്നലെ വൈകുന്നേരം പ്രദർശിപ്പിച്ച ചലച്ചിത്രം കാണാൻ അഭിനേതാക്കളുൾപ്പെടെ നിരവധി പേർ പനാജിയിലെ കലാ അക്കാഡമിയിൽ എത്തിയിരുന്നു

തുടർന്നുളള മത്സരങ്ങളിൽ ശ്രീകാന്ത് കൊറിയൻ താരത്തെയും സൌരഭ് തായ്ലാന്റ് താരത്തെയും നേരിടും

സിമ്രാൻ സിൻഹിയും ഋതിക താക്കറും അവസാന എട്ടിലെത്തിയിട്ടുണ്ട് കുഹു ഗാർഗും അനൌഷ്ക പരീഖും അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു

ഇരുവരും ഒളിമ്പിക് മത്സരങ്ങളിലേക്ക് നേരത്തേ യോഗൃത നേടിയിരുന്നു

നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കേന്ദ്ര സാഹിത്യ അക്കാദമി ഇന്ത്യൻ കൌൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച് എന്നിവ പുസ്തകോത്സവത്തിന്റെ ഭാഗമാകും ഇതോടനുബന്ധിച്ച് അടുത്ത മാസം നാല് മുതൽ എട്ട് വരെ കൊച്ചി ലിറ്ററച്ചർ ഫെസ്റ്റിവലും നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു

ഗവൺമെന്റ് പദ്ധതിയിൽ വീടുകൾ ആവുന്നതുവരെ ഈ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനാണ് പദ്ധതി ജില്ലാ ഭരണസംവിധാനത്തിന്റെ നേതൃത്വത്തിലാണ് സംരംഭം തങ്കല്ല് മുക്കടവ് തുടങ്ങിയ കോളനികളിലെ ആദിവാസികൾക്കാണ് പ്രളയത്തിലും ഉരുൾപൊട്ടലിലും കിടപ്പാടം പൂർണമായി നഷ്ടമായത്